സർക്യൂട്ട് ഇംഫാലിൽ എട്ട് വികസനപദ്ധതികൾക്കും നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

തീവ്രവാദി സംഘങ്ങൾക്ക് ആയുധം നൽകിയ കേസിൽ നയീമിനെ ഡൽഹി കോടതി പത്ത് ദിവസത്തേയ്ക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു

വി ഡബിൾ സർക്യൂട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചു

മണിപ്പൂരിലെ കായിക താരങ്ങൾ ദേശീയിൽ അന്തർദേശീയ നിലയിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുക്കണ്ട്ന്നും അവർ മൂലം രാജ്യത്തിന് അഭിമാനം ഉണ്ടായെന്നും പ്രധാനമീന്ത്രി വൃക്തമാക്കി ന്യൂസ്ഡസ്ക് ആകാശവാണി

പാർലമെന്റിൽ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു ധനമന്ത്രി സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ നിയന്ത്രണത്തിന് കൈക്കൊണ്ട നടപടികളും പുരോഗതികളും അന്വേഷണവിഷയങ്ങളുടെ പരിധിയിൽ കേന്ദ്രധനമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നികുതിയുടെ പങ്കും അതേപോലെ ഓരോ സംസ്ഥാന ഗവണ്മെന്റിന്റെയും പ്രവർത്തന മികവിന് ലഭിക്കേണ്ട പ്രത്യേക പദ്ധതികളെ സംബന്ധിച്ചും കമ്മീഷന്റെ പരിധിയിലുൾപ്പെടുത്താൻ പ്രവർത്തന കമ്മീഷന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

ഡൃൽഹ്റി ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോട്ടുനപ്പര്മ്പര നടത്താൻ പദ്ധതിയിട്ട പത്ത് പേരെയാണ് എൻ ഐ ്എ് അറസ്റ്റു ചെയ്തത്

നിയമനിർമ്മാണത്തിലൂടെ പ്രിശ്നത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ ന്ടക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിന് പ്രോത്സാഹനം നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ക്ഷേത്രത്തിൽ സ്ത്രീപ്രവേശനം ഉറപ്പാക്കുന്നതിന് സുപ്രീംകോടതി അനുവദിച്ചിട്ടുണ്ടെന്ന് സിപിഐ എം ലെ ശ്രീ പി കരുണാകരൻ പറഞ്ഞു

ക്ഷേത്രപ്രവേശനം എന്നത് സ്ത്രീകളുടെ അവകാശമല്ലെന്ന് ബിജെപി യിലെ മീനാക്ഷി ലേഖി അഭിപ്രായപ്പെട്ടു വിശ്വാസി സമൂഹത്തെ പ്രകോപിപ്പിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി

മഹാത്മാഗാന്ധി പ്രതിമയ്ക്കുമുന്നിൽ തെലുങ്കുദേശം വൈ എസ് ആർ കോൺഗ്രസ് എം പിമാർ ധർണ്ണ നടത്തി ആന്ധ്രപ്രദേശിന് പ്രത്യേക പദവിയും ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായ അമരാവതിക്ക് സാമ്പത്തിക സഹായവും ആവസ്യപ്പെട്ടാണ് ധർണ്ണ നടത്തിയത്

വിഷയത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ പ്രചാരണങ്ങളും കള്ളത്തരങ്ങളിൽ അടിസ്ഥാമാണെന്ന് ശ്രീമതി

ലോക്സഭയിൽ റഫാൽ ഇടപാടിൽ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അവർ കൂടുതൽ വിവരങ്ങളുമായി കവിത

യു പി എ ഗവൺമെന്റിനേക്കാൾ മെച്ചപ്പെട്ട ഇടപാട് നടത്തിയത് എൻ ഡി എ ഗവൺമെന്റ് ആണ് യു പി എ കാലത്തേക്കാൾ ഒൻപത് ശതമാനം ചെലവു കുറഞ്ഞതായിരുന്നു നിലവിലെ യുദ്ധവിമാന ഇടപാടിന്റെ അടിസ്ഥാനവില

എന്നാൽ ഫ്രാൻസിൽ നിർമ്മിച്ചു വിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് സിൽ നിർമ്മിക്കുന്ന് വിമാനങ്ങളേക്കാൾ വില കുറഞ്ഞതാണെന്ന് ശ്രീമതി ് സീതാരാമൻ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചീഫ് ജസ്റ്റീസ് രൻജൻ ഗോഗോയ് ജസ്റ്റീസ് എസ് കെ കൌൾ എന്നിവരടങ്ങിയ ബഞ്ച് കേസ് പരിഗണിക്കും

വേണുഗോപാലിനോട് പരമോന്നത കോടതി ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രജ്ജൻ ഗൊഗോയി ജസ്റ്റിസ് എസ്

മിതമാ്യ നിരക്കിൽ ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് രാസവസ്തു രാസവള മന്ത്രാലയത്തിനു കീഴിലാണ് ജൻഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ചത്

ആളില്ലാ റെയിൽവേ ലെവൽ ക്രോസിംഗുകളുടെ എണ്ണം കുറച്ച്തോടെ അപകടങ്ങളിൽ കാര്യമായ കുറവ് വന്നതായി റെയിൽബ് മീന്തി രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പ്പിറ്റിങ്ങ്തു കഴിഞ്ഞ ഒൻപത് മാസക്കാലയളവിൽ മൂന്ന് അപക്ടങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്

രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ ജനങ്ങളും മാധ്യമങ്ങളും തനിയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു